തിരുവോണത്തെ വരവേൽക്കാൻ മലയാളികൾ ഒരുങ്ങി

ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിനോട് ലോകം വിടപറ യാൻ സമയമായെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു

ഈമാസം രണ്ടിനാരംഭിച്ച രണ്ടാ ഴ്ചയോളം നീളുന്ന സമ്മേളനം ന്യൂഡൽഹി പ്രഖ്യാപനത്തോടെ വെള്ളി യാഴ്ച സമാപിക്കും രുട്ട്ട്ട്ട്ട്ട്ട്ട ദക്ഷിണേന്തൃയിൽ ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന കരസേനാ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതീവ ജാഗ്രത തുടരു ന്നു ജനങ്ങൾ കൂടുന്ന ബസ് സ്റ്റാന്റുകളിലും റെയിൽവെ സ്റ്റേഷനുകളിലും മറ്റും പൊലീസ് ജാഗ്രത പുലർത്തുന്നുണ്ട് ഓണാഘോഷവുമായി ബന്ധ പ്പെട്ട് തിരക്ക് വർദ്ധിക്കുന്ന സ്ഥലങ്ങളിലും കൂടുതൽ പൊലീസിനെ നിയോ ഗിച്ചു ഗുജറാത്ത് തീരത്ത് തീവ്രവാദികളെത്തിയെന്ന് സംശയിക്കുന്ന ആളൊ ഴിഞ്ഞ ബോട്ട് കണ്ടെത്തിയതിനെ തുടർന്നാണ് കരസേന ഭീകരാക്രമണ സാധ്യത സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയത്

പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണത്തെ വര വേൽക്കാനും സമൃദ്ധിയോടെ ആഘോഷിക്കാനും വിഭവങ്ങൾ ശേഖരിക്കുന്ന ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലാണ് നാടെങ്ങും മൂലയാളികൾ

വൈകീട്ട് കനകക്കുന്നിലെ നിശാഗന്ധിയിൽ മുഖ്യമന്ത്രി പിണ റായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മികച്ച് ചലച്ചിത്ര നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കീർത്തി സുർർഷും ചലച്ചിത്രതാരം ടൊവിനോ തോമസും മുഖ്യാതിഥികളായി പങ്കെടുക്കും

സമൃദ്ധിയുടെയും സമഭാവനയുടെയും ഉത്സ വമായി ഇത്തവണത്തെ ഓണാഘോഷം മാറട്ടെയെന്ന് മുഖ്യമന്ത്രി ആശം സിച്ചു എല്ലാവിധ വേർതിരിവുകൾക്കും അതീതമായി മനുഷ്യ മനസ്സുകളുടെ ഒരുമ ഉയർത്തിപ്പിടിക്കേണ്ട ഘട്ടമാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മനു ഷ്യർക്കിടയിൽ സ്നേഹവും ശാന്തിയും ഒത്തൊരുമയും കൂടുതൽ ശക്തി യോടെ നിലനിൽക്കേണ്ട കാലമാണിതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു

രുട്ട്ട്ട്ട്ട്ട്ട്ട പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള സന്ദേശമാക്കി ഓണക്കാലത്തെ മാറ്റാൻ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചതായി മന്ത്രി എ

കോഴിക്കോട് ജില്ലാതല ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുക യായിരുന്നു അദ്ദേഹം

കെ ബാലൻ ഉദ്ഘാടനം ചെയ്യും മൂന്ന് വേദികളിലായാണ് ജില്ലയിലെ ഓണാ ഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്

നാളെ ദേവസ്വംബോർഡ് വക തിരുപോണ സദ്യയും ഉണ്ടാ കും ഓണ സദ്യകളുടെ ഒരുക്കങ്ങളുമായി ഇന്നലെയാണ് ശബരിമലയിൽ നട തുറന്നത് ഇന്ന് മുതൽ വെള്ളിയാഴ്ച ഉച്ചവരെ കളഭാഭിഷേകവും നട ക്കും

എസ് സുനിൽ കുമാർ പറഞ്ഞു പാലക്കാട് ആലത്തൂരിൽ നിറ പദ്ധതിയുടെ ഇക്കോഷോ പ്പ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി നെൽ കർഷകർക്ക് ഏ റ്റവും കൂടുതൽ ധനസഹായം നൽകുന്ന സംസ്ഥാനമാണ് കേരളമെന്നും മന്ത്രി പറഞ്ഞു ആലത്തൂർ മണ്ഡലത്തിൽ സമ്പൂർണ്ണ യന്ത്രവത്കൃത കൃഷി നടപ്പാക്കാൻ തുക അനുവദിക്കുമെന്നും മന്ത്രി അറിയിച്ചു

കെട്ടിടങ്ങൾ പൊളിക്കുന്നതിന് നടപടി കളും ഇതിനാവശ്യമായ സാങ്കേതിക സാമ്പത്തിക കാര്യങ്ങളും യോഗം ചർച്ച ചെയ്യും സുപ്രീംകോടതി ഉത്തരവ് നടപ്പാക്കാൻ സംസ്ഥാനത്തിന് ബാധ്യത യുണ്ടെന്ന് ഇന്നലെ ഫ്ളാറ്റുകൾ സന്ദർശിക്കാനെത്തിയ ചീഫ് സെക്രട്ടറി ടോം ജോസ് അറിയിച്ചു ഫ്ളാറ്റ് സമുച്ചയങ്ങൾ പൊളിച്ചുകളയാനാവശ്യമായ നട പടികളാണ് ആലോചിക്കുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു

നിയമലംഘനം പരിശോധിക്കാൻ നിയോഗിച്ച വിദഗ്ദ്ധ സമിതി തങ്ങളുടെ ഭാഗം കേട്ടില്ലെന്ന് റിട്ട് ഹർജിയിൽ പറയുന്നു ഹർജി അടിയന്തിരമായി പരിഗണിക്കണമെന്ന് അഭിഭാഷകർ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയേക്കും രുട്ടിട്ട്ട്ട്ട്ട്ട്ട കേരള ബാങ്ക് യാഥാർത്ഥ്യമാവുന്നതോടെ പ്രവാസികളുടെ പ്രശ്ന ങ്ങൾക്ക് പരിഹാരമാവുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു ചെറാ യിയിൽ പ്രവാസികൾക്കായി ആരംഭിച്ച എറണാകുളം ജില്ലയിലെ ആദ്യ സഹ കരണ സംഘം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രവാസികളെ ദേശസാൽകൃത ബാങ്കുകൾ അവഗണിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു ദേശസാൽകൃത ന്യൂജനറേഷൻ ബാങ്കുകൾ പ്രവാസികളോട് ഉദാര സമീ പനം കൈക്കൊള്ളണമെന്നും മന്ത്രി പറഞ്ഞു

ടോസ് നേടിയ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ ബാറ്റിംഗിന് അയയ്ക്കുകയായിരുന്നു

മലയാളി താരങ്ങളായ ജിൻ സൺ ജോൺസൺ എം ശ്രീശങ്കർ എം പി ജാബിർ കെ ടി ഇർഫാൻ ടി ഗോപി മുഹമ്മദ് അനസ് നിർമൽ നോഹ ടോം അലക്സ് ആന്റണി പി

ചിത്ര വി കെ വിസ്മയ ജിസ്ന മാത്യു എന്നിവർ ടീമിൽ ഇടം നേടി

വീടുകൾക്കും കൃഷിയിടങ്ങൾക്കുമാണ് വിള്ളൽ സംഭവിച്ചത് രദ്ദേഷ്ടങ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് കക്കയം ഡാമിന്റെ ഷട്ടറുകൾ ഇന്നലെ അരയടി തുറന്നു

തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കല ക്ടർ അറിയിച്ചു

കൈനകരി കനകാശേരി പാടശേഖരത്തിൽ മട വീണ് വീടുകൾ വെള്ളത്തിലായതിനെ തുടർന്ന് നൂറോളം കുടുംബങ്ങൾ ദുരിതത്തിലായി മോട്ടോർ പ്രവർത്തിപ്പിക്കാത്തതിനാൽ ആറ് ബ്ലോക്കിലും ഇരുപതോളം വീടു കൾ വെള്ളത്തിലാണ്

സി ജോയി അന്തരിച്ചു

സംസ്കാരം നാളെ രാവിലെ ഒൻപതിന് തത്തംപള്ളി സെന്റ് മൈക്കിൾസ് പള്ളി സെമിത്തേരിയിൽ നടക്കും ഇടവ ഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ച വളർത്തു മൃഗങ്ങൾ വാരിക്കുഴി വരന്മാരെ ആവ ശ്യമുണ്ട് തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളുടെ നിർമാതാവായിരുന്നു ജോയി ദൃഭട അന്തരിച്ച സർവീസസ് ടീം മുൻ കോച്ചും കായികതാരവുമായ കുട്ടി എന്ന പി വി കുഞ്ഞിരാമന്റെ മൃതദേഹം ഇന്ന് രാവിലെ കണ്ണൂർ പഴയങ്ങാടി അതിയടത്തെ സമുദായ ശ്മശാനത്തിൽ സംസ്കരിക്കും നാഷണൽ ഗെയിം സിലും സർവീസസ് മീറ്റുകളിലും മെഡലുകൾ നേടിയ കുഞ്ഞിരാമൻ ഞായ റാഴ്ച പൂനെയിലാണ് അന്തരിച്ചത്

രദേഷ്ടെടു ആശുപത്രി കെട്ടിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കരാറുകാരൻ കണ്ണൂർ ചെറുപുഴ സ്വദേശി ജോസഫിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ആവശ്യപ്പെട്ടു സംസ്ഥാന ചീഫ് സെക്രട്ടറി യോടും ഡി

മടിക്കൈ സ്വദേശി കെ ബിനുവാണ് മരിച്ചത് രദേഷ്ടെടു കോഴിക്കോട് മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴി യുകയായിരുന്ന രോഗി വീണ് മരിച്ചു

സംഭവത്തിൽ മെഡിക്കൽ കോളജ് പോലീസ് കൊലപാ തകകുറ്റത്തിന് കേസെടുത്തു

രദേഷ്ടെടു കേരളത്തിൽ മാത്രമല്ല രാജൃത്ത് ആകമാനം സ്ത്രീകൾക്ക് നേരെ അതി ക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധൃ ക്ഷ എം

ഇടുക്കി സൈബർസെല്ലിന്റെ സഹകരണത്തോടെ കമ്മീഷൻ വെള്ളിയമാറ്റം ഗ്രാമപഞ്ചായത്തിൽ സംഘ ടിപ്പിച്ച ബോധവത്ക്കരണ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അ വർ രദേവ്ടക്കു ഓണാവധിയുടെ മറവിൽ അനധികൃതമായി പാറ മണ്ണ് ഖനനവും നിലം നികത്തലും നടത്തുന്നത് തടയാൻ എറണാകുളം ജില്ലയിലെ എല്ലാ താലൂ ക്കുകളിലും കലക്ടർ തഹസിൽദാർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്കാഡുകൾ രൂപീകരിച്ചു നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെ തിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കലക്ടർ അറിയിച്ചു

ഒ ചെക്ക്പോസ്റ്റിൽ വിജിലൻസിന്റെ മി ന്നൽ പരിശോധനയിൽ കണക്കിൽ പെടാത്ത പണം പിടികൂടി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കി ഇൻസ്പെക്ടർ ഓഫീസ് അസിസ്റ്റന്റ് എന്നിവരിൽ നിന്നാണ് കണക്കിൽ പെടാത്ത പണം കണ്ടെത്തിയത് വിജിലൻസ് ഡയര ക്ടർക്ക് റിപ്പോർട്ട് കൈമാറി തുടർ നടപടി സ്വീകരിക്കുമെന്ന് വിജിലൻസ് അ ധികൃതർ അറിയിച്ചു

തൈലക്കുന്ന് സ്വദേശി ആന്റണി എന്ന അന്തോണിയെ പൊലീസ് അറസ്റ്റ് ചെയ്തു